പദ്ധതികൾക്ക് നാളെ ഓൺലൈനായി തുടക്കം കുറിക്കും

കർഷകരുമായി കേന്ദ്ര സർക്കാർ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് കൃഷിമന്ത്രി ്ന്റർപ്പ്രദ്ദ്സിംഗ് തോമർ

നൊവാക് ജോക്കോവിച്ചും വനിതാ വിഭാഗത്തിൽ നവോമി ഒസാക്കയും ഫൈനലിൽ കടന്നു

ആത്മനിർഭർ ഭാരതിന്റെ നെടുംതൂണായി വടക്കു കിഴക്കൻ മേഖലയെ മാറ്റുന്നതിന് യോജിച്ച പ്രവർത്തനം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു

ധൂബ്രി ഫുൽബാരി പാലം മാജുലി പാലം തുടങ്ങിയവയുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു യാത്രാ സൌകര്യങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പുതിയ പദ്ധതി കൾ അസമിലെ വിനോദസഞ്ചാരമേഖലയ്ക്ക് കരുത്ത് പകരുമെന്നും ചൂണ്ടിക്കാട്ടി കേന്ദ്ര ഉപരിതല ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി അസം മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു അസമിൽ ഒരു ില്ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ വരും ദിവസൂങ്ങളിൽ നടപ്പാക്കുമെന്ന് ശ്രീ നിതിൻ ഗഡ്കരി അറിയിച്ചു

പുഗലൂർ തൃശൂർ വൈദ്യുതി പ്രസരണ പദ്ധതി കാസർഗോഡ് സൌരോർജ്ജ പദ്ധതി അരുവിക്കര ജലശുദ്ധീകരണ പദ്ധതി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു

തിരുവനന്തപുരത്തെ സംയോജിത നിർദ്ദേശ നിയന്ത്രണ്ട് കേന്ദ്രത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും

തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് പദ്ധതിക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും

അരുവിക്കര ജലശുദ്ധീകരണ പ്സാന്റിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നാളെ നിർവ്വഹിക്കും അമ്പത് ദൌത്യത്തിന് കീഴിൽ നിർമ്മിച്ച ജലശുദ്ധീകരണ പ്നാന്റ് തിരുവനന്തപുരത്തെ കുടിവെള്ള വിതരണ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലോകമെമ്പാടുനിന്നും വിദ്യാർത്ഥികൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാം

കർഷ്കർ ആവശ്യപ്പെട്ടാൽ നിയമത്തിലെ വ്യവസ്ഥകൾ ഓരോന്നായ്യി ്ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നും മന്ത്രി ഗുവഹട്ടിയിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കേന്ദ്ര ബജറ്റിൽ കാർഷിക മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു മാറ്റിയതിന് ശേഷം ക്രമസമാധാനപാലനത്തിൽ ഉണ്ടായ നേട്ടങ്ങളെപ്പറ്റി ഉദ്യോഗസ്ഥർ സംഘത്തെ ധരിപ്പിച്ചു

നാളെ ലക്ഷദ്വീപിൽ എത്തിച്ചേരുന്ന അദ്ദേഹം ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനിലെ സെക്രട്ടറിമാരുമായി കവരത്തിയിൽ കൂടിക്കാഴ്ച നടത്തും തുടർന്ന് കവരത്തിയിലെ അടൽ പര്യാവരൺ ഭവന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിക്കും തുടർന്നുളള ദിവസങ്ങളിൽ സുഹേലി ചെറിയകര കടമാത്ത് ബംഗാരം ദ്വീപുകൾ സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും

രണ്ടാം ഘട്ടത്തിൽ വാക് സിനേഷൻ സ്വീകരിക്കുന്നതിനായി പോലീസ് സൈന്യം കേന്ദ്ര സായുധ സേന മുനിസിപ്പൽ പഞ്ചായത്ത് റവന്യൂ ജീവനക്കാർ തുടങ്ങി ഒരു ലക്ഷത്തി ദ്രോർ ലേറെ പേർ ഇതുവരെ രജിസ്റ്റർ ചെയ്തു തെരഞ്ഞിട്ടൂപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോക്സ്ഥർക്ക് വാക്സിനേഷൻ നൽകുന്നതി നുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്

കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആരോഗ്യ ടൂറിസം രംഗത്ത് രാജ്യം മുന്നേറ്റം നടത്തിയതായും അദ്ദേഹം പറഞ്ഞു

സൈന്യവും പോലീസും സംയുക്തമായി നടത്തിയ തെരച്ചിലിലാണ് ആയുധ ശേഖരം കണ്ടെത്തിയത്

കഴിഞ്ഞ രണ്ടു ദിവസത്തിനുളളിൽ രണ്ടര ലക്ഷം ഫാസ്ടാഗുകൾ വിറ്റഴിച്ചതായും ദേശീയപാതാ അതോറിറ്റി അറിയിച്ചു

കിഴക്കൻ ടെക്സാസ് മുതൽ മെരിലാന്റ് വരെയുള്ള പ്രദേശങ്ങളിൽ ശ്ദ്ദേശ്രീയ കാലാവസ്ഥാ വിഭാഗം ശൈത്യ മുന്നറിയിപ്പ് നല്കിയിട്ടുണ്ട് ടെക്സാസ് ലൂസിയാന അർക്കൻസാസ് മിസിസ്സീപ്പി എന്നിവിടങ്ങ്ങളില്ല മഞ്ഞുവീഴ്ച ശീതക്കൊടുങ്കാറ്റിന്റെ സാധ്യതകൂട്ടുമെന്നും കാല്പാവസ്ഥാ വിഭാഗം അറിയിച്ചു

റഷ്യയുടെ അസ്താൻ കാരത്സേവിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് ജോക്കോ വിച്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ ഫൈനലിൽ ഒമ്പതാം തവണയും പ്രവേശിച്ചത്

ഇന്ന് നടന്ന് സെമിയിൽ അമേരിക്കയുടെ സെറീനാ വില്യംസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോൽപ്പിച്ചാണ് ഒസാക്കയുടെ വിജയം

ഏഴ് ഒളിമ്പിക് മത്സരങ്ങളിൽ ജപ്പാനെ പ്രതിനിധീക രിച്ചു വനിതാ കായികതാരം കൂടിയായ ഹാഷിമോട്ടോ പുതിയ പദവി ഏറ്റെടുക്കുന്നതിനായി മന്ത്രി സ്ഥാനം രാജി വച്ചു സ്ത്രീവിരുദ്ധ പരാമർശത്തെ തുടർന്ന് സംഘാടക സമിതിയുടെ മുൻ പ്രസിഡന്റ് യോഷിമിറോ മോറി രാജിവച്ചതിനാലാണ് പുതിയ നിയമനം